കോവിഡ് മരണനിരക്കെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

കാത്തു സൂക്ഷിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ

തദ്ദേശ തിരഞ്ഞെടുപ്പു തീയതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കേരളത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി

എൽ ക്രിക്കറ്റിലെ രാം കാളിഫൈയർ മത്സരത്തിൽ ഹൈദരാബാദ് ഡൽഹി പോരാട്ടം ഇന്ന്

ഇത് ആഗോളതലത്തിൽ ഏറ്റവും താഴ്ന്ന നിരക്കാണ്

ഇരുരാജ്യങ്ങളും തമ്മിൽ ചുഷുളിൽ ചേർന്ന എട്ടാമത് കമാൻഡർ തല ചർച്ചയിലാണ് തീരുമാനം വിശദാംശങ്ങളുമായി സുരേഷ് വോയിസ് അതിർത്തിപ്രദേശങ്ങളിലെ പടിഞ്ഞാറൻ മേഖലയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യയും ചൈനയും ആത്മാർത്ഥവും ശക്തവുമായ അഭിപ്രായങ്ങൾ പരസ്പരം കൈമാറി ഇരുരാഷ്ട്രങ്ങളുടെയും നേതാക്കൾ എത്തിച്ചേർന്ന സമവായ ആശയങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി

തെറ്റിദ്ധാരണയും തെറ്റായ നിഗമനങ്ങളും ഒഴിവാക്കുവാൻ ധാരണയായതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സൈനിക നയതന്ത്ര മാർഗത്തിലൂടെ സംഭാഷണവും ആശയവിനിമയവും തുടരാനും ഇരുരാജ്യങ്ങളും സമ്മതിച്ചു കൂടിക്കാഴ്ചകളിലൂടെ ചർച്ചകൾ മുന്നോട്ട് കൊുപോകും സുപ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്താനും പരസ്പരം പ്രേരിപ്പിക്കും

സാർനാഥ് ലൈറ്റ് ആന്റ് സൌ് ഷോ ലാൽ ബഹാദൂർ ശാസ്ത്രി ആശുപത്രിയുടെ നവീകരണം വാരാണസി നഗരത്തിൽ നടപ്പാക്കുന്ന സ്മാർട്ട് ലൈറ്റിംങ് ധാന്യ സംരക്ഷണ കേന്ദ്രം തുടങ്ങി നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവ്വഹിക്കുക

അദ്വാനിയുടെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായും ആശംസ നേർന്നു കഠിനാധ്വാനത്തിലൂടെയും നിസ്വാർത്ഥ സേവനത്തിലൂടെയും രാജ്യ വികസനത്തിന് സംഭാവന നൽകി യ നേതാവാണ് അദ്വാനിയെന്ന് അദ്ദേഹം പറഞ്ഞു വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കറും അദ്വാനിക്ക് ജന്മദിനാശംസ നേർന്നു

കൊവിഡിനെ നേരിടാൻ വൈറസ് ട്ടാസ്ക്ക് ഫോഴ്സിനെ പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ ജനതയെ ്അഭിസംബോധന ചെയ്ത് സംസാരിക്കവെ ബൈഡൻ അറിയിച്ചു

കോവിഡ് സമ്പദ് വ്യവസ്ഥ കാലാവസ്ഥാവ്യതിയാനം വംശീയത തുടങ്ങിയ കാര്യങ്ങളിൽ നിർണായക തീരുമാനം ബൈഡന്റെ ഭാഗത്തു നിന്നും ഉാകുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത് ജോ ബൈഡന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കൊവിഡിനെതിരെയുള്ള പോരാട്ടമാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാകുന്ന ആദ്യവനിതയാണ് ഇന്ത്യൻ വംശജ കമല ഹാരിസ് പല കാര്യങ്ങൾക്കും പുതിയതായി തുടക്കമിടാൻ കഴിയുമെന്നും നമുക്ക് ഒരുമിച്ചു നീങ്ങാമെന്നും കമലാ ഹാരിസ് ട്വീറ്റ് ചെയ്തു

ജന്നാധിപ്പത്യമൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഇന്ത്യയും അമേരിക്കയും ഏരൂമിച്ച് ചേർന്ന് ഭാവിയിൽ ലോക കൂടുതൽ സമാക്ട്രാന്പ്പരവും സമൃദ്ധവുമാക്കാൻ ത്തെ സാധിക്കുമെന്ന് ഉപരാഷ്ട്രപതി ് എം്

ആക്ട്രവ്സ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഇന്ത്യ അമേരിക്ക ബ്സ്സ് ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സംഭാവനയാണ് ജോബൈഡൻ അർപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു വൃക്തമായ ദിശാബോധം നൽകി അമേരിക്കൻ ജനതയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജോ ബൈഡൻ നിലകൊള്ളുമെന്ന് കോൺഗ്രസ് നേ താവ് രാഹുൽഗാന്ധി ട്വീറ്റ് ചെയ്തു

നിരവധി വെല്ലുവിളികളാണ് മുന്നിലുള്ളതെന്ന് അഭിനന്ദന സന്ദേശത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ചൂിക്കാട്ടി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്യൂഡോ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദേൽ ഫത്തേ അൽ സിസി തുടങ്ങിയവരും ഇരുവരേയും അഭിനന്ദിച്ചു

പ്രസ്ഥാനാർഥികൾ വോട്ടഭ്യർഥന തുടങ്ങി

പരമാവധി വോട്ടർമാരെ പ്രന്യേരിൽ കാണാനുള്ള സ്ഥാനാർഥികളുടെ ഗൃഹപര്യടനം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ കൂടുതൽ സജീവമായി കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിയന്ത്രണങ്ങൾ നിലവിലുള്ളതിനാൽ ഗൃഹസന്ദർശനം ഒന്നോ രോ പേർക്കൊപ്പം മാത്രമാണ്

എല്ലിൽ ഇന്ന് അബുദാബിയിൽ നടക്കുന്ന രാം കാളിഫെയർ മത്സരത്തിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും

ഈ മത്സരത്തിലെ വിജയി ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിടും

കേരളത്തിൽ നെടുമ്പാശ്ശേരി മാത്രമായിരിക്കും ഹജ്ജ് എമ്പാർക്കേഷൻ പോയിന്റ്

ഇന്ത്യ ഇൌ ഉത്തരവാദിത്വം ഗൌരവത്തോടെ കാണുന്നതായും ഇന്ത്യയോടു കാണിച്ച വിശ്വാസത്തിൽ നന്ദി അറിയിക്കുന്നതായും യു

കോവിഡ് സുരക്ഷാ മുൻ കരുതലുകൾ കർശനമായി ഉറപ്പുവരുത്തിയശേഷമായിരിക്കും ക്ലാ സുകളെന്ന് മുഖ്യമന്ത്രി ഉദ്ദവ് താക്കറെ പറഞ്ഞു ആഗോളസ്ഥിതി കണ ക്കിലെടുക്കുമ്പോൾ കൊറോണയുടെ മറ്റൊരുതരംഗത്തിന്റെ സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ദീപാവലിക്കുശേഷം കൂടുതൽ ജാഗ്രത പാലിക്കേതുന്നും അദ്ദേഹം പറഞ്ഞു